ചൈനയിലെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാരൃ മന്ത്രാലയം

ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ചും വനിതാ സിംഗിൾസിൽ ഗർബീനിയ മുഗുറുസയും ഫൈനലിൽ

നാളെ ആരംഭിക്കുന്ന ബജറ്റ് സ്മ്മേള്നത്തിന് മുന്നോടിയായി വിളിച്ചു കൂട്ടിയ സർവ്വകക്ഷി യോഗ്രത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് രാജ്യത്തെ നില്പിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ബജറ്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അംഗങ്ങൾക്ക് മുന്നോട്ടുവയ്ക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതുവർഷത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉചിതമായ ദിശ ചൂണ്ടി ക്കാട്ടാൻ അംഗങ്ങൾക്ക് കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും പാർലമെന്റിൽ ആരോഗൃപരമായ ചർച്ചകൾ നടത്താൻ അംഗങ്ങൾക്ക് കഴിയണം വിഷയങ്ങളിൽ തുറന്ന ചർച്ച നടത്താൻ ജനപ്രതിനിധി കൾക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിങ് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ളാദ് ജോഷി സഹമന്ത്രിമാരായ അർജ്ജുൻ രാം മേഘ്വാൾ വി മുരളീധരൻ എന്നിവരും എല്ലാ പാർട്ടികളിലും നിന്നുള്ള എം പി മാരും സർവ്വകക്ഷിയോഗത്തിൽ പങ്കെടുത്തു

സംസ്ഥാനത്ത് സ്ഥായിയായ സമാധാനം നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോ ലാൻഡ് ആഗ്രഹിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാകുന്ന തെന്ന് ശ്രീ

കരാറിലേർപ്പെടാൻ സഹായം നൽകിയ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു കീഴടങ്ങിയവർക്ക് സമഗ്രമായ പുനരധി വാസം ഉറപ്പാക്കുമെന്ന് അസ്സം ധന്നകാര്യമന്ത്രി ഹിമന്ദ ബിസ്വാ ശർമ്മ പറഞ്ഞു

അഞ്ച് ദശാബ്ദം നീണ്ട ബോഡോ പ്രശ്നം രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ പരിഹരിക്ക പ്പെട്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു അക്രമം വിട്ട് ഭരണഘടനയിലും ജനാധിപതൃത്തിലും വിശ്വാസം അർപ്പിച്ച ബോഡോ വിഭാഗങ്ങളുടെ നടപടിയെ ശ്രീ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു ഈ കരാർ അസമിലെയും രാജ്യത്തെ മറ്റ് അക്രമ ബാധിത പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കുള്ള സന്ദേശമാണ് അക്രമവും സംഘർഷവുമില്ലാത്ത അന്തരീക്ഷത്തിലേ രാജ്യ പുരോഗതി സാധ്യമാകു

വിദ്യാർത്ഥിനിയെ തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഐസ്ടാലേഷൻ വാർഡിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്

എന്നാൽ ഭയപ്പെടേണ്ട സാഹചരൃമില്ലെന്നും വിദ്യാർത്ഥിനിയുടെ ആരോഗൃ നില തൃപ്തികരമാ ണെന്നും ആരോഗൃ മന്ത്രി ക്കെ

ശൈലജ അറിയിച്ചു

വോയ്സ് ചൈനയിൽ കൊറോണ വൈറസ് പടരുന്ന പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനയും ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയവും പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം

വൃക്തിശുചിത്വം പാലിക്കുക ഇടവിട്ട് സോപ്പുപയോഗിച്ച് കൈകഴുകുക രോഗബാധയുള്ളവരുമായി സമ്പർക്കം പുലർത്താതിരിക്കുക തുടങ്ങിയി ്നിർദ്ദേശമാണ് പുറപ്പെടു വിച്ചിട്ടുള്ളത്

സംസ്ഥാന ക്ക്യൂന്ദ ഭരണ പ്രദേശങ്ങളിലെ അധികൃ തരുമായി കൊറോണ വൈറസ്ബാ്ധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉണ്നതർ വൈറസ് പടരാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് വ്യിലയിരുത്തൽ നടത്തിയിരുന്നു

രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഉപർാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എന്നിവർ രാഷ്ട്രപിതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ പുഷ്പചക്രം സമർപ്പിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിങ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള മുൻ പ്രധാനമന്ത്രി ഡോ മൻ ്മോഹൻ സിങ് ബിജെപി നേതാവ് എൽ

അദ്ധാനി സംയുക്ത് സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് കരസേന മേധ്യാപി ജനറൽ മനോജ് നർവണെ നാവികാ സേനാ മേധാവി അഡ്മിറ്റ്ൽ കരംബീർ സിങ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ആർ

ഡൽഹി നിയമസഭ തെരഞ്ഞെടുപ്പിന് ഒമ്പത് ദിവസം മാത്രമാണ് ഇനി ശേഷി ക്കുന്നത് അടുത്തമാസം എട്ടിനാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളും പിവിധ പാർട്ടി നേതാക്കളും വോട്ടർമാരെ ആകർഷിക്കാൻ തിരക്കിട്ട പ്രചാരണമാണ് നടത്തുന്നത്

നിലവിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി ബി ജെ

അതിനിടെ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് മാതൃക പെരുമാറ്റ ചട്ടം ലംഘിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസയച്ചു

ജെ

ജെ

പ്രചരണ ത്തിനിടെ വിവാദ പരാമർശം നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണിത് അതേസമയം വ്യാജമായ പരസ്യങ്ങൾ നൽകി മാതൃക പെരുമാറ്റ ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് ബി ജെ

ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസയച്ചു നാളെ തന്നെ മറുപടി നൽകണമെന്ന് ശ്രീ അരുൺ സിംഗിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയില്ലി റിപ്പബ്ലിക് ദിന പരേഡ് ക്യാമ്പിലെ എൻ